കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എസ്എസ്എൽസി പ്തസ്ടു പരീക്ഷകൾ മാറ്റിവെച്ചു

സ്വാമി ചിത്ഭവാനന്ദജിയുടെ ഭഗവത്ഗീത കിൻഡിൽ പതിപ്പ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭഗവത്ഗീതയുടെ കിൻഡിൽ പതിപ്പ് പുറത്തിറങ്ങുന്നതോടെ കൂടുതൽ യുവാക്കൾക്ക് ഗീതാസാരം അടുത്തറിയാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

അമേരിക്കൻ പ്രസിഡന്റ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖരും ഉച്ചകോടിയിൽ സംബന്ധിക്കും

വിശദവിവരങ്ങളുമായി അശ്വതി

നിസ്സഹകരണ പ്രസ്ഥാനം കിറ്റ് ജൂന്ത്യാ് സമരം മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്ര തുടങ്ങി സ്വാത്ത്യ്സമർത്തിലെ സുപ്രധാന ഏടുകളാകും പ്രദർശനത്തിൽ ഉണ്ടാകുക

പ്രധാന പരിപാടി ഗാന്ധിനഗറിലെ സബർമതി ആശ്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യും

ആകാശവാണിയും ദൂരദർശനും ഗുജറാത്തിലെ ഉദ്ഘാടന പരിപാടികൾ തത്സമയം ജനങ്ങളിലെത്തിക്കും സംഘടിപ്പിക്കുന്ന പരിപാടികൾ വിശദീകരിക്കുന്നതിനായി കേന്ദ്ര വാർത്ത വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശ പ്രകാരം സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്

മുൻ രാഷ്ട്രപതി അബ്ദുൾകലാം സർവകലാശാലയിലെ പൂർവ വിദ്യാർത്ഥിയും ധവള വിപ്തവത്തിന് പിന്നിലെ ശക്തിയുമായ ഡോ

ആദ്യ ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അ്പ്പസാന തീയതിയും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റുള്ള അവസാന ദിവസവും നാളെയാണ്

കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ലഭിച്ച നിർദ്ദേശ പ്രകാരമാണ് തീരുമാനം

ഏമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നീളെയാണ് പത്രികാ സമർപ്പണം ആരംഭിക്കുക

പത്രികാ സമർപ്പണം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കെടുക്കുന്നവർ മാസ്ക് നിർബന്ധമായും ധരിക്കണം

രോഗവ്യാപനം കുറയ്ക്കാൻ സത്വര നടപടികൾ സ്വീകരിച്ച കേരളത്തെ ആരോഗ്യമന്ത്രാലയം അഭിനന്ദിച്ചു എന്നാൽ മഹാരാഷ്ട്ര പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിൽ രോഗ വ്യാപനം വർദ്ധിച്ചെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വാർത്താ സ്ടുമ്മേളനത്തിൽ അറിയിച്ചു

ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്കും കർശന നിയന്ത്രണമേർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അയൽസംസ്ഥാനങ്ങളിൽ കോവിഡ് വർദ്ധിക്കുന്ന സാഹചരൃം കൂടി പരിഗണിച്ച് ബംഗളുരുവിലും സമീപ പ്രദേശങ്ങളിലും രോഗം പടരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രസിദ്ധമായ ആലുവ മണപ്പുറത്ത് കർശനമായ നിയന്ത്രണങ്ങളോടെ ബലിതർപ്പണങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു

പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്

സി സി